ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യ ത്തിന്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തശേഷം പ്രതിനിധികളോട് സംസാ രിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോ ണിയോ ഗുട്ടറസ്സും വിജ്ഞാൻ ഭവനിൽ നടന്ന സമ്മേളനത്തിൽ സന്നിഹിതനായി രുന്നു രാജ്യത്തെ ഗതാഗത സമ്പ്രദായം ജൈവ ഇന്ധനത്തിലേക്ക് മാറ്റാൻ ഗൌരവ മായ നടപടികൾ സ്വീകരിച്ചുവരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജൈവ മാലിന്യത്തിൽ നിന്ന് ജൈവ ഇന്ധനം ഉല്പാദിപ്പിക്കുകയെന്ന വെല്ലുവിളി അവസ രമാക്കി മാറ്റുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദ ഇയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നട ക്കുന്ന പ്രത്യേക ചടങ്ങിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്സിൽ നിന്ന് ഇന്ന് ഏറ്റുവാങ്ങും

അസാധാരണ വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് കൃത്രിമമായി ഏകതം അടിച്ചേൽപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി കുറ്റപ്പെടുത്തി മോദി ഗവൺമെന്റിനെതിരെ പുതിയ സ്ഥാത ന്ത്ര്യസമരത്തിന് മഹാരാഷ്ട്രയിലെ വാർധയിൽ ചേർന്ന പാർട്ടി പ്രവർത്തക സമിതി ആഹാനം ചെയ്തു

ജനാധിപത്യപരമായ ചർച്ചകളും വിയോജിപ്പുകളും ഞെരിച്ചമർത്താനാണ് മോദി ഭരണകൂടം ശ്രമിക്കു ന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി മഹാത്മാഗാന്ധിയുടെ പൈതൃകം വോട്ട് തട്ടാ നുള്ള അവസരവാദത്തിന് ആർ എസ് എസും ബി ജെ പിയും ദുരുപയോഗിക്കുക യാണെന്നും പ്രമേയത്തിൽ പറയുന്നു പാർട്ടി പ്രസിഡന്റ് രാഹുൽഗാന്ധി അധ്യ ക്ഷനായിരുന്നു യു പി എ ചെയർ പേഴ്സൺ സോണിയാഗാന്ധി മുൻ പ്രധാന മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു വിഭജന രാഷ്ട്രീയവും തെറ്റായ വാഗ്ദാനവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പിൻതുടരുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധി ഒന്നിപ്പിച്ച രാജ്യത്തെ നരേന്ദ്രമോദി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാ ണ് വാർധയിൽ കോൺഗ്രസ് പ്രവർത്തക റാലിയെ അഭിസംബോധന ചെയ്യുകയാ യിരുന്നു അദ്ദേഹം

റാബി വിളയ്ക്ക് ചുരുങ്ങിയ താങ്ങുവില ഉല്പാദന ചെല വിന്റെ ഒന്നര മടങ്ങാക്കുമെന്നും കേന്ദ്രം ഉറപ്പുനൽകി രാജ്യത്ത് ധാരാളമായി ഉല്പാ ദിപ്പിക്കുന്ന കാർഷിക വിളകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാനും യോഗം തീരുമാനി ച്ചു അതേസമയം ഗവൺമെന്റ് നൽകിയ ഉറപ്പ് കർഷകർ തള്ളിക്കളഞ്ഞു ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്ന കർഷകരെ ഡൽഹി ഗാസിയാബാദ് ദേശീയ പാതയിൽ പൊലീസ് തടഞ്ഞു ഇതേ തുടർന്നുണ്ടായ അക്രമസംഭവങ്ങളിലും പൊലീസ് ലാത്തിച്ചാർജ്ജിലും ഒട്ടേറെ കർഷകർക്കും പൊലീസുകാർക്കും പരി ക്കേറ്റു രാത്രി റോഡിൽ തമ്പടിച്ച ഇവരുമായി കേന്ദ്ര കൃഷി സഹമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ചർച്ച നടത്തി

രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ജസ്റ്റിസ് ദീപക് മിശ്ര ഇന്നലെ വിരമിച്ച ഒഴിവിലാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ ഗൊഗോയിയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്

തിരുമലയിലെ സ്വവ സതിയിൽ പൊതുദർശനത്തിനുവെച്ച ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് രോഹിൻഗ്യൻ അഭയാർത്ഥി കുടുംബ ത്തിലെ അഞ്ചുപേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

ഹൈദരാബാദിൽ നിന്ന് തിങ്കളാഴ്ച ട്രെയിൻ മാർഗ്ഗം തിരു വനന്തപുരത്തെത്തിയ ഇവർ ഓട്ടോറിക്ഷയിൽ വിഴിഞ്ഞത്തെത്തുകയായിരുന്നു

വരുമാനം ലഭിക്കുന്ന നല്ല ജോലി തേടിയാണ് കേരള ത്തിൽ എത്തിയതെന്ന് ഇവർ പൊലീസിന് മൊഴി നൽകി

ഇന്നുമുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാ വസ്ഥാനിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം മുംബൈയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ടുഗോളിന് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് ജംഷഡ്പൂർ പുതിയ സീസണിൽ വിജയ ത്തുടക്കം കുറിച്ചത് ഇന്ന് ഡൽഹി ഡൈനാമോസ് പൂനൈ സിറ്റി എഫ് സിയെ നേരിടും

പാര മ്പര്യ കാർഷിക വിളകൾക്കുണ്ടായതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടായത് വീട്ടുവ ളപ്പിലെ വിളകൾക്കാണ് സർവകലാശാല നിയോഗിച്ച വിദഗ്ദ്ധസംഘമാണ് പഠനം നടത്തിയത്

സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം ആവശ്യമാണെന്ന് കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു പത്തനംതിട്ട കോന്നിയിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ സ്ത്രീപ്രവേശനം അനുവദിച്ച സൂപ്രീം കോടതി വിധി ക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

അയ്യപ്പ ഭക്തർ നടത്തുന്ന പോരാട്ടത്തെ വിജയിപ്പിക്കാൻ ബി ജെ പി കൂടെയുണ്ടാകുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സച്ഛതാ ഹി സേവ യുടെ ഭാഗമായി ബി ജെ പി നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് ് ് ് ് ആചാരവിരുദ്ധമായി ശബരിമല ചവിട്ടാൻ എരുമേലിയിലൂടെ ഒരു യുവതിയേയും കടത്തി വിടില്ലന്ന് പി സി ജോർജ്ജ് എം എൽ എ പറഞ്ഞു സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധിയിൽ പ്രതിഷേധിച്ച് പത്തന്ംതിട്ട പന്തളത്ത് നടത്തിയ ശരണ മന്ത്രഘോഷയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി എ

സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻെറ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർ വഹിക്കുകയായിരുന്നു മന്ത്രി

ജോയ് കൊടുങ്ങല്ലൂരിൽ നിര്യാതനായി

സി പി ഐ എം എൽ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്

പ്രളയത്തെ തുടർന്ന് നശിച്ച എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്ത് തറികളിൽ നെയ്ത്ത് ആരംഭിച്ചു

ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ

ഉഷ ഉദ്ഘാടനം ചെയ്തു

വയനാട് കല്പറ്റയിൽ പ്രളയം നിമിത്തം കൃഷിനാശം സംഭവിച്ച കൂടും ബശ്രീ ജെ എൽ ജി കർഷകർക്ക് എം എസ് സ്വാമിനാഥൻ ഫൌണ്ടേഷൻ സൌജ ന്യ വിത്ത് വിതരണം നടത്തി മൂന്ന് മാസത്തിനകം വിളപ്പെടുക്കാൻ കഴിയുന്ന വിത്താണ് കർഷകർക്ക് നൽകിയത്

എറണാകുളം പുത്തൻവേലിക്കര പഞ്ചായത്തിൽ പ്രളയാനന്തര കാർഷിക പുനർജനി മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രളയം ബാധിച്ച കൃഷിയിടങ്ങളെ പുനർനിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

കൂടുതൽ ജനങ്ങൾക്ക് ശുദ്ധജലം നൽകാനാകും വിധം വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം വിപുല പ്പെടുത്തുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന ഞാങ്കടവ് ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതിയുടെ നിർമാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

നാടക പ്രവർത്തകനും ശില്പിയുമായിരുന്ന ആലപ്പുഴ പൂങ്കാവ് സ്വദേശി സി

സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് പൂങ്കാവ് പള്ളി സെമിത്തേരിയിൽ

ജോലി ഇന്ന് പുനഃരാരംഭിക്കും തുറവൂർ മുതൽ ഓച്ചിറ വരെ ഭാഗത്താണ് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്നത്